ബിജെപി യുടെ ദേശീയ അംഗത്വ വിതരണ കൃാമ്പയിന് ഉത്തർപ്രദേശിലെ വാരാണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു

കേരളത്തിൽ ക്രാ്ർഷിക വായ്പകൾ യഥാർത്ഥ കർഷകർക്ക് മാത്രം ലഭിക്കാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി വി എസ് സുനിൽ കുമാർ

കാനഡ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ പി

ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിവിധ ബിജെപി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു

ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയത്തിനുശേഷമുള്ള ശ്രീ മോദിയുടെ രണ്ടാം മണ്ഡല സന്ദർശനം കൂടിയാണിത് ബിജെപി വർക്കിംഗ് പ്രസിഡന്റ് ജെ പി നദ്ദ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ക്യാമ്പയിന് നേതൃത്വം നൽകുന്ന പാർട്ടി നേതാവ് ശിവ്രാജ് സിങ് ചൌഹാൻ തുടങ്ങിയവരും അംഗത്വ വിതരണ ക്യാമ്പയിനിൽ പങ്കെടുത്തു ഇന്ന് രാവിലെ വാരണാസി വിമാനത്താവളത്തിൽ മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പ്രതിമ ശ്രീ മോദി അനാഛാദനം ചെയ്തിരുന്നു ഹൈദരാബാദിൽ നടക്കുന്ന ബി ജെ പി അംഗത്വ വിതരണ ക്യാമ്പയിൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്യും രാജ്യസ്നേഹിയും ദേശീയോദ്ഗ്രഥനത്തിനുവേണ്ടി പ്രവർത്തിച്ച വൃക്തിയുമായിരുന്നു ശ്രീ ശ്യാമപ്രസാദ് മുഖർജിയെന്ന് ശ്രീ അമിത് ഷാ ട്വിറ്ററിൽ കുറിച്ചു

മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ വ്യവസായമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു ് അദ്ദേഹം രാഷ്ട്രീയ നേതാവ് എന്നതിനൊപ്പം അഭ്ടിഭാഷക്ൻ അധ്യാപകൻ എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്

രാജ്യത്തിന്റെ മൊത്ത വികസനമാണ് ബജറ്റ് ലക്ഷ്യമിടുന്നതെന്നും ശ്രീമതി സീതാരാമാൻ ആകാശവാണിയോട് പറഞ്ഞു

വോയ്സ് എല്ലാ പദ്ധതികളും ഉത്തരവാദിത്തതോടെ നിറവേറ്റാനാണ് ഗവൺമെന്റ് ശ്രമമെന്ന് കേന്ദ്രധനമന്ത്രി നിർമലാ സീതാരാമൻ പറഞ്ഞു ഇന്ത്യയിൽ പ്രയോഗിച്ചു വിജയിച്ച പെരുമാറ്റ സാമ്പത്തിക ശാസ്ത്രത്തിനാണ് ബജറ്റ് ഊന്നൽ നൽകുന്നതെന്നും അവർ വ്യക്തമാക്കി വളരെ കുറച്ചു മാത്രം ചർച്ച ചെയ്യപ്പെട്ട പെരുമാറ്റ സാമ്പത്തികശാസ്ത്രം ഇന്ത്യയിൽ വിജയിച്ചതായും അവർ ചൂണ്ടിക്കാട്ടി തങ്ങളെക്കാൾ അർഹരായ ആവശൃക്കാർക്കായി സബ്സിഡികൾ വേണ്ടെന്നു വയ്ക്കാൻ തയ്യാറായ ജനങ്ങളുടെ പെരുമാറ്റം ഇതിന് ഉദാഹരണമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ഗ്രാമങ്ങളിലെ മാത്രമല്ല നഗര ജീവിതവും കൂടുതൽ മെച്ചപ്പെടുത്താൻ ബജറ്റ് സഹായകമാകുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ബാങ്കിംഗ് ഇതര സാമ്പത്തിക സ്ഥാപനങ്ങൾ ഇന്ത്യൻ ബാങ്കിംഗ് വൃവസ്ഥയിൽ ഏറെ പ്രാധാനൃമർഹിക്കുന്നതായും ഇവയ്ക്ക് ഊന്നൽ നൽകിയിട്ടുള്ള പദ്ധതിക്കും ബജറ്റിൽ പ്രാമുഖ്യം നൽകിയതായി അവർ അറിയിച്ചു

സ്റ്റാർട്ടപ്പുകൾക്ക് നികുതി ഇളവുകൾ ഇൽകുന്നതു വഴി ഈ മേഖലയിൽ കൂടുതൽ ഉണർവുണ്ടാകും രാജ്യത്തെ കൂടുതൽ ഉയർച്ചയിലേക്ക് നയിക്കാനാണ് ബജറ്റ് ലക്ഷ്യമിട്ടുന്നതെന്ന് ലോക്സഭയിൽ ബജറ്റ് അവതരണ വേളയിൽ കേന്ദ്രമന്ത്രി വൃക്തമാക്കി

പ്രധാനമന്ത്രി മത്സ്യ സമ്പദാ യോജനയിലൂടെ മത്സ്യബന്ധന മേഖലയ്ക്ക് ഉണർവേകാനാകുമെന്നും കേന്ദ്ര ധനമന്ത്രി വൃക്തമാക്കി ന്യൂസ് ഡെസ്ക് ആകാശവാണി

വളരെ വലിയ നിക്ഷേപ സൌഹൃദ സംരംഭമാണ് ബജറ്റെന്ന് അസോചാം പ്രസിഡന്റ് ബി

ഗ്രാമീണ അടിസ്ഥാന സൌകര്യ വികസനം ലക്ഷ്യം വയ്ക്കുന്നതും വികസനക്കുതിപ്പിനായി നികുതി ലഘൂകരണ നടപടികൾ ആവശ്യപ്പെടുന്നതുമാണ് ബജറ്റെന്ന് ശ്രീ ഗോയങ്ക പറഞ്ഞു

ഗവൺമെന്റ് ആരോഗ്യ മേഖലയ്ക്ക് നൽകുന്ന പ്രാധാന്യമാണ് ബജറ്റ് വിഹിതത്തിലെ വർദ്ധനയിലൂടെ വ്യക്തമാകുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ പറഞ്ഞു

കാർഷികം സാമൂഹികം വ്യാവസായികം തുടങ്ങിയ വിവിധ മേഖലകളെ സ്പർശിക്കുന്നതാണ് ബജറ്റെന്ന് റയ്മണ്ട് ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം സിംഗാനിയ

തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ ബജറ്റ് പരാജയപ്പെട്ടുവെന്ന് മഹീന്ദ്ര ഹോളിഡെയ്സ് ചെയർമാൻ അരുൺ നന്ദ അഭിപ്രായപ്പെട്ടു

കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം കോഴിക്കോട് നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കർഷകർക്ക് ലഭിക്കേണ്ട വായ്പാ ഇളവുകൾ അനർഹർ തട്ടിയെടുക്കുന്നത് തടയാൻ ഇക്കാര്യം ആർ ബി ഐയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര ബജറ്റ് കാർഷിക മേഖലയ്ക്ക് നിരാശാജനകമാണ്ണെന്നും കർഷകർക്ക് ഒരു സഹായവും നൽകുന്ന പദ്ധതികൾ ബ്ജ്റ്റിലില്ലെന്നും കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു

കളക്ടറേറ്റിൽ നടന്ന പ്രത്യേക യോഗത്തിൽ വിവിധ വകുപ്പു മേധാവികളുമായും ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനായി ജലശക്തി അഭിയാനിൽ സംസ്ഥാനത്ത് നിന്നൂര ക്ാസർകോട് പാലക്കാട് ജില്ലകളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്

ദിനാചരണത്തിന്റെ ഭാഗമായി കേരള സഹകരണ യൂണീയ്ന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി സംസ്ഥാന സഹകരണ യൂണിയൻ സ്റ്റാമ്പ് പുറത്തിറക്കും

ഇന്ത്യ ശ്രീലങ്ക മത്സരം ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിക്ക് ലീഡ്സിൽ ആരംഭിക്കും

നാലു ടീമുകൾ സെമിയിൽ കടന്നു ഇന്ന് ഇന്ത്യ ശ്രീലങ്കയെയും ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയേയും നേരിടുന്നതോടെ എല്ലാ ടീമുകളും ഒൻപത് മത്സരം പൂർത്തിയാക്കും പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരെ ഇന്നത്തെ മത്സരങ്ങൾ നിർണ്ണയിക്കും

ശ്രീലങ്കയെ തോൽപ്പിക്കുകയും ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയോട് തോൽക്കുകയും ചെയ്താൽ ഇന്ത്യ ഒന്നാമതെത്തും

ഇന്ത്യ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ന്യൂസിലന്റ് എന്നീ ടീമുകളാണ് സെമി ഫൈനലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്

റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ന്യൂസ്ലിന്റ് സെമിഫൈനലിൽ പ്രവേശിച്ചു

ഇന്ത്യയുടെ തന്നെ സൌരബ് വെർമ്മയും ഇന്ന് ക്വാർട്ടർ ഫൈനലിൽ മത്സരിക്കുന്നുണ്ട് ചൈനയുടെ ലി ഷി ഫെങ്ങിനെയാണ് സൌരബ് നേരിടുന്നത്

മൂന്നു മണിക്കൂർ നീണ്ട മത്സരത്തിൽ ബ്രസീലിയൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് അവർ മുന്നേറിയത്

സ്ഥലത്തെ സുരക്ഷാസേന്റ് പോസ്റ്റ് ലക്ഷ്യം വച്ചുള്ളതായിരുന്നു ആക്രമണമെന്ന് ഫര്യാ്ബ് പ്ര്പ്വിശ്യ പോലീസ് വക്താവ് അറിയിച്ചു